ഇന്ത്യയുടെ ആഭ്യന്തരകാര്യമെന്ന് ബംഗ്ലാദേശും മാലിദ്വീപും

സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം

ജെ

നേതാവുമായ സുഷമാ സ്വരാജിന് നാടിന്റെ അന്ത്യാഞ്ജലി

കൂടുതൽ വിവരങ്ങളുമായി വിനോദ് കുമാർ

ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുക്കപ്പ്പ്പെട്ടനമന്ത്രി നരേന്ദ്ര മോദി കേന്ദ്ര മന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അമീൽ് ഷാ പ്രകാശ് ജാവ്ദേക്കർ മുതിർന്ന ബി

നേതാവ് എൽ

അദ്യാനി കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് തുടങ്ങി വിവിധ്യാക്കുക്ഷി നേതാക്കൾ പങ്കെടുത്തു വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണ്ണ്ർമാർക്കു പുറമെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ചടങ്ങിൽ പങ്കെടുത്തു നേരത്തെ വസതിയിൽ പൊതു ദർശനത്തിനു വച്ച ഭൌതിക ദേഹത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഒട്ടേറെ പ്രമുഖർ സുഷമാ സ്വരാജിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു

ജെ

പ്രസിഡന്റ് അമിത് ഷാ ലോക്സഭാ സ്പീക്കർ ഓം ബിർള യു

എ

ജെ

ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദ ബി

നേതാവ് മായാവതി കേരള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബി ജെ

ഹേമമാലിനി നോബൽ സമ്മാന ജേതാവ് കൈലാഷ് സത്യാർത്ഥി യോഗ ഗുരു രാംദേവ് എന്നിവരും അന്തരിച്ച നേതാവിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വസതിയിൽ എത്തിയിരുന്നു കടുത്ത ഹൃദ്രോഗത്തെ തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു സുഷമാ സ്ഥരാജ് അന്തരിച്ചത് ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുഷമാ സ്വരാജ് മത്സരിച്ചിരുന്നില്ല ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ തീരുമാനത്തിൽ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച് മരിക്കുന്നതിന് അല്പം മുമ്പ് സുഷമാ സ്വരാജ് ട്വീറ്റ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഉഭയ കക്ഷി ബന്ധത്തിൽ നിർണ്ണായക സംഭാവനയാണ് സുഷ്മ സ്വരാജ് നൽകിയതെന്ന് വിദേശകാര്യ വക്താവ് ഹുവാ ചുന്നൃംഗ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു

വിദേശകാര്യമന്ത്രിയായിരുന്ന കാലയളവിൽ നടത്തിയ ചൈനീസ് സന്ദർശനങ്ങളേയും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ നൽകിയ സംഭാവനകളേയും ചൈന അനുസ്മരിച്ചു

ബംഗ്ലാദേശിന് ഒരു നല്ല സുഹൃത്തിനെയാണ് നഷ്ടമായിരിക്കുന്നതെന്ന് അവർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഇൻഡ്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി ബന്ധം പുതിയ തലത്തിലേക്ക് എത്തിക്കുവാൻ സുഷമ സ്വരാജ് നൽകിയ സംഭാവനകൾ ബംഗ്ലാദേശ് എന്നൂം ഓർമ്മിക്കുമെന്നും ശ്രീമതി

സംസ്ഥാന ഗവൺമെന്റിന്റെ മൂന്നാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ ഇന്നു ആഘോഷിക്കാനിരിക്കുകയായിരുന്നു

സൂര്യപ്രകാശ് പ്രസാർഭാരതിയോടാണ് അദ്ദേഹം ഇക്കാര്യം വൃക്തമാക്കിയത് നികത്താനാകാത്ത ശൂനൃതയാണ് ശ്രീമതി സുഷമ സ്വരാജിന്റെ വിടവാങ്ങൾ സൃഷ്ടിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ ബംഗ്ലാദേശ് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലെന്ന് ഗതാഗത മന്ത്രി ഒബൈദുൾ ഖാദർ ധാക്കയിൽ പറഞ്ഞു

പരമാധികാര രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യമാണിത് ഭരണഘടനാപരമായ തീരുമാനം ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ അവകാശമാണെന്ന് മാലിദ്വീപ് വ്യക്തമാക്കി

സുപ്രീം കോടതി ജഡ്ജിമാരുടെ ് എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ സഭ ചർച്ച കൂടാത്തെ പ്രാസ്സാക്കി

ലോക്സഭയിൽ നിന്ന് ബിൽ നേരത്തെ പിൻവലിച്ചിരുന്നു

അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ അർദ്ധ അതിവേഗ ട്രെയിനുകൾക്കായി നിലവിലുള്ള ഇരട്ട പാതയ്ക്കു പുറമെ മൂന്നും നാലും പാത എന്നത് സംസ്ഥാനത്തിന്റെ മുൻഗണനാ പട്ടികയിലുള്ള പദ്ധതിയാണ്

ബഷീറിന്റെ അപകടമരണം സംബൃക്പ്പിച്ച് അന്വേഷണത്തിൽ ഒരു വിട്ടുവീഴ്ച്ചയുമുണ്ടാവില്ലെന്ന് ്മുഖ്യമന്ത്രി പിണറായി വിജയൻ പഴുതില്ലാത്ത അന്വേഷണ്ണം ഉറപ്പാക്കും കുറ്റം ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും അന്വേഷണത്തിൽ ഇടപെടുന്നവർക്കെതിരെ കർശ്ശന നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മരിച്ച കെ

തുടർച്ചയായ നാലാം തവണയാണ് നിരക്ക് കുറയ്ക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി വിനോദ് കുമാർ

റിവേഴ്സ് റിപ്പോ നിരക്കിൽ ഇത്തവണ മാറ്റം വരുത്തിയിട്ടില്ല

കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഏറ്റവും കുറഞ്ഞ റിപ്പോ നിരക്കായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലും ഏപ്രിലിലും നടന്ന അവലോകന യോഗത്തിലും റിപ്പോനിരക്കിൽ കുറവ് വ്യൂരുത്തിയിരുന്നു റിപ്പോ നിരക്കിൽ കുറവ് ്വന്നതോടെ ബാങ്കുകളിലെ വായ്പാ പലിശ നിരക്കുകളിലും കുറവും വരും

ഇന്ത്യൻ സമയം വൈകുന്നേരം ഏഴ് മണിക്ക് ഗയാനയിലാണ് ആദ്യ മത്സരം

മൽക്കാൻഗിരി റായഗഡ കോരാപുട്ട് കന്ധമാൽ ഗജപതി തുടങ്ങിയ ജില്ലകളിൽ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായതായി ദുരന്ത നിരവാരണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ബി പി സേത്തി അറിയിച്ചു നിരവധി ട്രെയിനുകൾ റദ്ദാക്കി ചിലത് വഴിതിരിച്ചു വിട്ടു അംബാഡോലയിൽ ചരക്കു തീവണ്ടിപാളം തെറ്റി

കൊൽഹാപൂർ സാംഗ്ലി റായ്ഗഡ് പൽഗാർ എന്നീ ജില്ലകളിലാണ് പ്രളയം രൂക്ഷമായത് ദേശീയ ദുരന്ത നിവാരണ സേനകളും കരനാവിക വ്യോമ സേനയും രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാണ്